ഐകൃരാഷ്ട്ര പൊതുസഭയിൽ പിന്തുണച്ച എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നന്ദി അറിയിച്ചു

എഫ് പലിശനിരക്കിൽ മാറ്റമില്ല

സംസ്ഥാനത്ത് രോഗവ്യാപനം കുറയുന്നതായി മുഖ്യമന്തി

തിനവർഗ്ഗ ഭക്ഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇന്ത്യ മുൻനിരയിൽ നിൽക്കുന്നതായും അദ്ദേഹം പറഞ്ഞു വിശദാംശങ്ങളുമായി കിരൺ ശങ്കർ വോയ്സ് തിനവർഗ്ഗ ഭക്ഷണങ്ങൾ പോഷകസമൃദ്ധമാണെന്നും ഇവ ഭക്ഷ്യസുര ക്ഷയും കർഷകക്ഷേമവും ഉറപ്പു വരുത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു

ന്യൂസ് ഡസ്ക് ആകാശവാണി

അഫ്ഗാനിസ്ഥാൻ അർമേനിയ ഇറാൻ ഖസാക്കിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുത്തു ഇറാനിലെ തുറമുഖത്തിൽ നിക്ഷേപം നടത്താനുള്ള ഛബാഹർ ഇന്ത്യയുടെ തീരുമാനം പ്രാദേശികമായ ഗതാഗതസാധൃതകളുടെ പ്രാധാനൃം തിരിച്ചറിഞ്ഞാണെന്ന് മന്ത്രിതല ചർച്ചകളിൽ പങ്കെടുത്തു കൊണ്ട് വിദേശകാര്യ മന്ത്രി എസ്

മധ്യേഷ്യൻ രാജ്യങ്ങൾക്കിടയിലെ സമുദ്രബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതി ജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു

പ്താറ്റ്ഫോമുകളിൽ പ്രദർശിപ്പിക്കുന്ന സീരീസുകൾക്കും ഷോ കൾക്കും നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് സുപ്രീം കോടതി ഇതിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ നിയന്ത്രണങ്ങൾ നാളെ തന്നെ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കണമെന്നും കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി ആമസോൺ ഇന്ത്യാ മേധാവി അപർണാ പുരോഹിത് സമർപ്പിച്ച പരാതി പരിഗണിക്കവേയാണ് കോടതിയുടെ നിരീക്ഷണം

ചട്ടങ്ങൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കർ ഒ

പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്വീകാര്യമാണെന്ന് ഒ

പ്രേക്ഷകർക്ക് മികച്ച ഉളളടക്കം ലഭ്യമാക്കുന്നതിനായി സർക്കാരും ഒ

രംഗവും ഒരുമിച്ച് നിൽക്കുമെന്ന് ശ്രീ

എഫ്

സ്വീകരിക്കാൻ ജനങ്ങൾ മുന്നോട്ടു വരണം ഇക്കാര്യത്തിൽ വിമുഖത ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

അടുത്ത അധ്യയന വർഷം കൂടി സ്കൂളുകൾ അടഞ്ഞു കിട ക്കുന്നത് താങ്ങാനാകാത്ത പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും സ്കൂളുകൾ തുറക്കാനുള്ള എല്ലാ സാധ്യതകളും പരിഗണിക്കപ്പെടണം എന്നും യുണീസെഫ് എക്സിക്യൂട്ടീവ് ഡയറ ക്ടർ ഹെന്റ്രീറ്റ ഫോർ വ്യക്തമാക്കി

പഠനത്തിനു പുറമേ കുട്ടികൾക്ക് സമപ്രായക്കാരുമായി ഇടപെടുന്നതിനും അവർക്ക് പോഷക്ട്രാഹാരവും പ്രതിരോധ മരുന്നുകളും ഉറപ്പുവരുത്തുന്നതിനുട്ടൂസ്കൂളുകൾ പ്രധാന പങ്കു വഹിച്ചിരുന്നു സ്കൂളുകൾ തൂറ്ക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് നഷ്ടമായ പാഠഭാഗങ്ങൾ കൂടി ലഭിക്കത്തക്ക വിധത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തണ്ണ്മെന്നു്ം യുണീസെഫ് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി

കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബെയ്ജാൾ എന്നിവരും ഇന്ന് വാക്സിൻ സ്വീകരിച്ചു

കൃഷ്ണമൂർത്തിയുടെ നിര്യാണത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവദേക്കർ അനുശോചനമറിയിച്ചു ദിനമലരിനെ ജനകീയമാക്കുന്നതിൽ കൃഷ്ണമൂർത്തിയുടെ സേവനങ്ങൾ നിസ്തുലമാണെന്ന് ശ്രീ

എസ് ജയശങ്കർ ബംഗ്ലാദേശ് വിദേശകാരൃ മന്ത്രി ഡോ

സുരക്ഷാ പ്രതിരോധം വ്യാപാരം ഗതാഗതം തുടങ്ങി എല്ലാ മേഖലകളിലും ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങ്ങളും ശ്രമിച്ചുവരുന്നതായി ശ്രീ

സുപ്രീം കോടതി മുൻ ജഡ്ജി രഞ്ജൻ പ്രകാശ് ദേശായി അദ്ധ്യക്ഷനായ ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ കാലാവധിയാണ് ദീർഘിപ്പിച്ചത്

പദ്ധതി സ്ഥലം സന്ദർശിച്ചശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്